നിർമ്മിച്ച ഉല്പന്നങ്ങൾ വാങ്ങണമെന്ന് ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജെ പി നേതാവ് മനോഹർ ലാൽ ഖട്ടർ സത്യപ്പിതിജ്ഞ ചെയ്തു

ജെ

ജമ്മുകാശ്മീരിലെ രജൌരി മേഖലയിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും കേന്ദ്രങ്ങൾക്കുംനേരെ ജനവാസ പാകിസ്ഥാൻ വെടിവയ്പ്

എസ് മേധാവി അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്

പെൺകുട്ടികളുടെ കഴിവൂകൾ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട് ഭാരത് കി ലക്ഷ്മി പദ്ധതിക്ക് വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾ ആഹ്താദകരമാണ് ആകാശവാണിയിലൂടെയുള്ള മൻ കി ബാത് പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്

ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും തന്നോട് ആശയപരമായി വിയോജിക്കുന്നവരോട് നയപരമായ സമീപനം സ്വീകരിക്കുന്നതിനും അദ്ദേഹം മുൻകൈ എടുത്തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മുൻപ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയേയും ശ്രീ മോദി അനുസ്മരിച്ചു

അടുത്ത അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒമാൻ തീരത്തേക്ക് ചുഴലിക്കാറ്റ് നീങ്ങും

റിയാദിൽ നടക്കുന്ന മൂന്നാമത് ഭാവി നിക്ഷേപ സംരംഭക സമിതിയിൽ അദ്ദേഹം പ്രസംഗിക്കും സൌദിയുമായി ബന്ധം ഉൌട്ടിഉറപ്പിക്കാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ദീപാവലിയോടനുബന്ധിച്ച് രാഷ്ട്രപ്പ്ക്ടി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ക്ഷേത്രങ്ങളിലും സുഹൃത്ത് ബന്ധു ഭവനങ്ങളിലും സന്ദർശനങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു സമൂഹത്തിൽ ഒത്തൊരുമയും പരസ്പര ധാരണയും ഉണ്ടാകാൻ ഇത്തരം ആഘോഷങ്ങൾ സഹായകമാകുന്നുണ്ടെന്ന് പ്രസിഡന്റ് മൈത്രിപാലാ സിരിസേന സന്ദേശത്തിൽ പറഞ്ഞു രാഷ്ട്ര പുരോഗതിക്കായി രാജ്യമൊറ്റക്കെട്ടായും സമാധാനത്തോടെയും മുന്നോട്ടു പോകണമെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമ സിംഗെ ദീപാവലി സന്ദേശത്തിൽ പറഞ്ഞു

കഴിഞ്ഞ രാത്രി സിറിയയിലെ ഇദ്ലിബ് പ്രവിശൃയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിലാണ് ഐ എസ് തലവൻ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്